യുവാക്കളോട് ആഹ്വാനം ചെയ്ത് മൻകി ബാതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പദ്ധതികൾക്ക് തുടക്കും കൂറിച്ച് പ്രധാനമന്ത്രി

ഇന്ത്യയുടെ സൈന നെഹ്വാൾ ഇൻഡോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് കിരീടം നേടി

വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് തെരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു

ഭാരതൃത്തിന്റെ ബൃഹത്തായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകമെങ്ങുമുള്ള ആൾക്കാർക്ക് അത്ഭുതമാണെന്നും പുതു തലമുറ ആവേശത്തോടെ ജനാധിപത്യ പ്രക്രിയയിൽ ഈ പങ്കാളികാളാകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മജയന്തി ദിനം രാജ്യാ സമുചിതമായി ആഘോഷിച്ചെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ദേശഭക്തിയേയും നിശ്ചയദാർഢ്യത്തെയും പ്രശംസിച്ചു രാജ്യത്തെ ബഹിരാകാശ പര്യവേഷണങ്ങളിൽ യുവാക്കളുടെ സംഭാവനയിൽ അഭിമാനിക്കുന്നുവെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങൾ വളരുന്ന ശക്തിയുടെ പ്രതീകമാണെന്ന് ശ്രീ

ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യയുടെ ഒന്നാം പ്രിട്ടിത്ത്യ സമരം തുടങ്ങിയ ചരിത്രത്തിലേക്ക നമ്മെ കൊണ്ട പ്പോകുന്നതാണ മ്യൂസിയം രാഷട്രത്തിന വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര്യ്മാരുടെ മുഖങ്ങളാണ് മ്യൂസിയത്തിന്റെ ഓരോ മുക്കും മൂലയും ഓർമ്മീപ്പിക്കുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അഭിപ്രായിപ്പെട്ടു

മധുരയിലെ രാജാജി തഞ്ചാവൂർ തിരുനെൽവേലി മെഡിക്കൽ കോളേജുകളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു

കശ്മീർ മുതൽ കന്യാകുമാരിവരെയും ഗുജറാത്ത് മുതൽ ഗുവഹാത്തിവരെയുമുള്ള സാധാരണക്കാർക്ക് ഗുണമേന്മയുളള ചികിത്സ ഉറപ്പാക്കുന്നതാണ് എയിംസ് ആശുപത്രികളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പദ്ധതികൾക്ക് തുടക്കമിട്ടു

പെട്രോ കെമിക്കൽ കോംപ്പക്സിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിച്ചു

ജി ബോട്ടിലിംഗ് പ്ലൂന്റ്റ്ള്ളിക്കുറ്റു സ്റ്റോറേജ് ഫെസിലിറ്റി ഉദ്ഘാടനം ഏറ്റുമാനൂർ സ്കിൽ ർഖ്ല്പ്ലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നിവയും പ്രിപ്രാർനമന്ത്രി നിർവ്വഹിച്ചു

കേരളത്തിനും അയൽ സംസ്ഥാനങ്ങൾക്കും ശുദ്ധമായ എൽ

ലഭ്യമാക്കുന്നതിൽ കൊച്ചിൻ റിഫൈനറിയ്ക്ക് വലിയ പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തമിഴ്നാട് സന്ദർശനത്തിനുശേഷമാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ശബരിമല വിഷയം സംസ്ഥാന ഗവൺമെന്റ് നിരുത്തരവാദപരമായി ആണ് കൈകാര്യം ചെയ്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വലിയ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവമോർച്ചയുടെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്

ഡി

സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ ഇരുമുന്നണികളും താൽപരൃം പ്രകടിപ്പിക്കുന്നില്ല മികച്ച ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനെ കള്ളക്കേസിൽ കൂടുക്കി യു ഡി എഫ്

പ്രതിപക്ഷത്തിന് ആശയ പാപ്പരത്തം ബാധിച്ചിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു തന്നെ ആക്രമിക്കുക മാത്രമാണ് ഇരു പക്ഷങ്ങളും ചെയ്യുന്നതെന്നും ഗവൺമെന്റ് ഭരണനിർവ്വഹണ സംവിധാനത്തിൽ തന്നെ തന്നെ മാറ്റം വരുത്തിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

ചിത്രങ്ങളും ശില്പങ്ങളും ഷോളുകളും ജാക്കറ്റുകളുമൂൾപ്പെടെ വിലയേറിയ അനേകം ഉപഹാരങ്ങൾ ലേലത്തിനായി വച്ചിട്ടുണ്ട് ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയ്ക്കായി നൽകുമെന്ന് കേന്ദ്ര സാസ്കാരിക മന്ത്രി ഡോ

കേന്ദ്ര സാസ്കാരിക വകുപ്പാണ് ലേലം സംഘടിപ്പിച്ചിരിക്കുന്നത്

ബുധനാഴ്ചയാണ് യോഗം യോഗത്തിൽ ലോകസഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുക

ബാബാസാഹേബ് അംബേദ്കറുടെയും ഗൌതമബുദ്ധന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെ റെയിൽവേ പ്രത്യേക യാത്ര സംഘടിപ്പിക്കുന്നു

ആർ

ടി

ട്രെയിനിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഉടൻ നിർവ്വഹിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

എന്നാൽ പൊതുജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് പുതിയ പേര് നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു ഇന്തൃയിലെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് ഈ ട്രെയിൻ

മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇത്തരമൊരു ട്രെയിൻ നിർമ്മിക്കാൻ കഴിഞ്ഞത് ലോകോത്തര നിലവാരമുള്ള ട്രെയിനുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയുമെന്നതിന്റെ ദൃഷ്ടാന്തമാണെന്നുപ്പു ശ്രീ ഗോയൽ പറഞ്ഞു

സി രാജ്യത്തൊട്ടാകെ നടത്തിയ സർവെയുടെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണ റെയിൽവേ ഈ നേട്ടം കൈവരിച്ചതെന്ന് ഡിവിഷണൽ മാനേജർ ശിരീഷ് കുമാർ സിൻഹ പറഞ്ഞു

നടന്ന സംഭവങ്ങൾ ദൌർഭാഗൃകരമാണെന്ന് സൈന പറഞ്ഞു

അയോദ്ധ്യ കേസ് പരിഗണിക്കുന്ന സുപ്രീംകോടതി ബഞ്ചിലെ ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ യുടെ അസാന്നിദ്ധ്യമാണ് കേസ് ക്ക്ൾക്കുന്ന തീയതി നീട്ടിവയ്ക്കാൻ കാരണം